മഹാത്മാഗാന്ധി സർവ്വകലാശാലയിലെ ബിടെക് മാർക്ക് ദാന വിവാദത്തിൽ വൈസ് ചാൻസലർ ഇന്ന് ഗവർണർക്ക് റിപ്പോർട്ട് നൽകും

സംസ്ഥാനത്ത് തുലാവർഷം ശക്തം

ശക്ത മായ ത്രികോണ മത്സരം നടക്കുന്ന അഞ്ചിടത്തും പ്രചാരണത്തിൽ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് എൽഡിഎഫ് യുഡിഎഫ് എൻഡിഎ മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ എല്ലാം തന്നെ പ്രചാ രണ രംഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐഎം സംസ്ഥാന സെക്ര ട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രിമാർ തുടങ്ങിയവർ എൽഡി എഫിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകി യുഡിഎഫ് പ്രചാരണത്തിന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ

ആന്റണി പ്രതിപക്ഷ നേതാവ് ്രമേശ് ചെന്നിത്തല എഐസി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി കെപിസിസി പ്രസി ഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ രംഗത്തുണ്ടായിരുന്നു എൻഡിഎ പ്രചാരണത്തിന് കുമ്മനം രാജശേഖരനും പി

ശ്രീധരൻപിള്ളയും തുഷാർ വെള്ളാപ്പള്ളിയും നേതൃത്വം നൽകി കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ ഇന്ന് വട്ടിയൂർക്കാവിലും കോന്നിയിലും പ്രചാരണത്തിനെത്തും നേരത്തെയും മുരളീധരൻ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തിയിരുന്നു ഇന്ന് പ്രധാനമായും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരിക്കും സ്ഥാനാർത്ഥികളുടേയും നേതാക്കളുടേയും പര്യടനം വൈകീട്ട് പ്രചാ രണ സമാപനത്തിന് പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന റോഡ്ഷോയും സംഘടിപ്പിക്കും

മഞ്ചേശ്വരം എറണാകുളം അരൂർ കോന്നി വട്ടി യൂർകാവ് മണ്ഡലങ്ങളിൽ തിങ്കളാഴ്ച്ചയാണ് വോട്ടെടുപ്പ് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ രക്ഷിക്കാൻ മോദി ഗവൺമെന്റിന് കഴിയുന്നില്ലെന്ന് മുൻ കർണാടകാ മുഖ്യമന്ത്രി കെ

ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരി ക്കാൻ പ്രധാനമന്ത്രി ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ചേ ശ്വരം മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു സിദ്ധരാമയ്യ

സാബു തോമസ് ഇന്ന് ഗവർണർക്ക് റിപ്പോർട്ട് നൽകും ബിടെക് പരീക്ഷ തോറ്റ വിദ്യാർത്ഥിനി സർവ്വകലാശാല അദാലത്തിൽ നൽകിയ അപേക്ഷയനുസരിച്ച് ജയിക്കാനാവശ്യമായ മാർക്ക് സിൻഡിക്കേറ്റ് നൽകുകയായിരുന്നു തോറ്റ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതോടൊപ്പം അഞ്ച് മാർക്ക് വീതം മോഡറേഷൻ നൽകാനും സിൻഡിക്കേറ്റ് തീരു മാനിച്ചു

മാർക്ക് ദാന അദാലത്തു മായി ബന്ധ പ്പെട്ട മന്തി കെ

ജലീലിന്റെ ഓരോ വാദവും സത്യവിരുദ്ധമാണെന്ന് യുഡിഎഫ് കൺവീനർ ബെന്നി ബെഹനാൻ കൊച്ചിയിൽ പറഞ്ഞു തട്ടിപ്പിന് കൂട്ടുനിന്ന സിൻഡിക്കേറ്റ് അംഗത്തെ പുറത്താക്കി അന്വേഷണം നട ത്തണമെന്നും ബെഹനാൻ ആവശ്യപ്പെട്ടു കാലിക്കറ്റ് സർവ്വകലാശാല സുവർണ്ണജൂബിലി ലൈഫ് സയൻസ് ബ്ലോക്കും അനിമൽ ഹൌസും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും ഗവേഷണത്തിനും പഠനത്തിനും രാജ്യത്തെ ഏറ്റവും മികച്ചിസൌകര്യങ്ങളാണ് അനിമൽ ഹൌസിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് തുടക്കത്തിൽ സർവ്വകലാശാലാ വിദ്യാർത്ഥികൾക്ക് മാത്രമേ അനിമൽ ഹൌസിലെ സൌകര്യങ്ങൾ ലഭി ക്കു പിന്നീട് അഫിലിയേറ്റഡ് കോളജ് വിദ്യാർത്ഥികൾക്കും സൌക ര്യങ്ങൾ നൽകും കോഴിക്കോട് കൂടത്തായി കൊലപാതക കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ താമരശേരി കോടതി ഇന്ന് പരിഗണിക്കും പൊലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഒരു ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാന്റ് ചെയ്ത മൂന്ന് പ്രതികളെയും രാവിലെ കോടതിയിൽ ഹാജരാക്കും പുലിക്കയം സ്വദേശി ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെ മര ണത്തോട് ബന്ധപ്പെട്ട് ജോളി ഉൾപ്പെടെ രണ്ട് പ്രതികളുടെ അറസ്റ്റ് ഇന്നലെ കോഴിക്കോട് ജില്ലാ ജയിലിലെത്തി പൊലീസ് രേഖപ്പെടു ത്തി

ഇതിനാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്താനും വനിതാ ജീവനക്കാരെ നിയമിക്കാനും രാജ്നാഥ് സിങ്ങ് നിർദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് തുലാവർഷം ശക്തമായി

നാളെ കാസർകോടൊഴികെ ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാ കുമെന്നാണ് കാലാവസ്ഥാ വിലയിരുത്തൽ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് രണ്ട് ദിവസം മഴ കനക്കാനാണ് സാന്യത

കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ നിന്ന് കടലിൽ മീൻപിടിക്കാൻ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

ഇന്നലെ കനത്ത മഴയിൽ മലപ്പുറം എടവണ്ണ ചോലാറ ആദിവാസി കോളനിക്ക് സമീപം മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലുമുണ്ടായി ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാമത്തേയും അവസാനത്തേയും മത്സരം ഇന്ന് റാഞ്ചിയിൽ തുടങ്ങും വിശാഖപട്ട ണത്തും പൂനെയിലും വിജയിച്ചു ഇന്ത്യ ഇതിനകം തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട് രാവിലെ ഒൻപതരക്കാണ് മത്സരം തുടങ്ങുന്ന ത് ഐഎസ്എൽ ആറാം സീസണ് നാളെ കൊച്ചിയിൽ കിക്കോഫ് വൈകീട്ട് ഏഴരക്ക് കേരളാ ബ്ലാസ്റ്റേഴ്സും കൊൽക്കത്ത എടികെയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ബിസിസിഐ നിയുക്ത പ്രസിഡന്റ് സൌരവ് ഗാംഗുലിയും ബോളിവുഡ് താരങ്ങളും മറ്റ് പ്രമുഖരും ഐഎ സ്എൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളാവും

വിദ്ധാൻ ഡോ

വാഗീഷിന്റെ സംഗീത കച്ചേരി വിദ്ധാൻ വിജയ്

ആകാശവാണി പിന്നീട് ഈ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും കുറ്റിപ്പുറം പാലത്തിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് രാത്രി ഗതാ ഗതം പൂർണമായി നിരോധിക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ ഉച്ചക്ക് യോഗം ചേരും മന്ത്രി കെ

ജലീലിന്റെ സാന്നിധൃത്തിൽ കുറ്റിപ്പു റത്തെ കെടിഡിസി മോർട്ടലിലായിരിക്കും യോഗം സാക്ഷരതാ മിഷന്റെ പാലക്കാട് ജില്ലാതല തുടർവിദ്യാഭ്യാസ കലോത്സവം ഇന്നും നാളെയും കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിൽ നടക്കും രാവിലെ കഥാകൃത്ത് മുണ്ടൂർ സേതു മാധവൻ പ്രതാക ഉയർത്തും നാളെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും തുടർച്ചയായ മൂന്നാം തവണയും പാലക്കാട് ജില്ലയിലെ ശ്രീകൃ ഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരൺ പുരസ്കാരത്തിന് അർഹമായി അടുത്ത ബുധനാഴ്ച്ച ഡൽഹിയിൽ പുരസ്കാരം സമ്മാനിക്കും

പഴയ സ്വർണാഭരണങ്ങൾ വാങ്ങി മൈസൂരിൽ കൊണ്ടുപോയി വിറ്റ പണമാണിതെന്ന് ആക്രമണത്തിനിരയായ യുവാക്കൾ പറഞ്ഞു

കേരളാ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് വയനാട് ജില്ലാ കമ്മ റ്റിയുടെ വൈറ്റ് കെയ്ൻ അനുസ്മരണ സമ്മേളനം ഇന്ന് നടത്തും കാഴ്ച്ചാ പരിമിതർക്ക് സമ്മേളനത്തിൽ റേഡിയോ സെറ്റുകൾ വിത രണം ചെയ്യും സംഘടനയുടെ കോഴിക്കോട് ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ രാവിലെ കുണ്ടായിത്തോട്ട് നടത്തുമെന്ന് ഭാര വാഹികൾ അറിയിച്ചു ഈ വർഷത്തെ പ്രളയത്തിൽ വനാവകാശ രേഖ നഷ്ടപ്പെട്ടവർക്ക് സർട്ടിഫൈഡ് കോപ്പി നൽകാൻ ഇടുക്കി ജില്ല വനാവകാശ നിരീ ക്ഷണ സമിതി യോഗം തീരുമാനിച്ചു റവന്യൂ ഭൂമിയിൽ താമസിക്കു ന്നവർക്കും പ്ലാന്റേഷൻ കൈവശ ഭൂമി റവന്യൂ ഭൂമി കൈവശം എന്നി വയ്ക്കും രേഖ നൽകില്ല കൃഷി താമസം എന്നിവയ്ക്ക് മാത്രമായി രിക്കും രേഖകൾ നൽകുന്നത് വനാവകാശ രേഖ ലഭിച്ച സ്ഥലം വിൽക്കുന്നതോടെ അത് റദ്ദാകുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

കോഴിക്കോട് താമരശ്ശേരിയിൽ പുതുതായി അനുവദിച്ച മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി

താമരശ്ശേരി യിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് ആണ് മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയാക്കിയത് കോഴിക്കോട് നാദാപുരത്ത് മുത്തലാഖ് ചൊല്ലി ഭാര്യയെ ഉപേ ക്ഷിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംഭവം അന്വേഷിക്കുമെന്നും ജില്ലാ പൊലീസ് മേധാ വിയോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് വനിതാ കമ്മീഷൻ അംഗം എം

യുവതി കുട്ടികളു മായി സമരം നടത്തിവരികയാണ്

മലപ്പുറത്ത് അനാഥാലയത്തിൽ നിന്ന് അഞ്ച് പെൺകുട്ടികൾ ഇറ ങ്ങിപ്പോയ സംഭവത്തിൽ വാർഡനും നടത്തിപ്പുകാരനുമെതിരെ കേസെടുക്കാൻ പാലക്കാട് ജില്ലാ ശിശുക്ഷേമ സമിതി പൊലീസിന് നിർദേശം നൽകി

ദേശീയപാതയിൽ അമ്പലപ്പുഴയ്ക്കടുത്ത് ലോഫ്ളോർ ബസ്സും കാറും കൂട്ടിയിടിച്ച് മൂന്ന് പേർ മരിച്ചു കാറിലുണ്ടായിരുന്ന മൂന്ന് ബംഗാൾ സ്വദേശികളാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചത് ആലപ്പുഴ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദീപാവലി ഉത്സവ ത്തിന് ഇന്ന് കൊടിയേറും